പ്രവർത്തനങ്ങളുടെ പുരോഗതി മന്ത്രിസഭാ യോഗം വിലയിരുത്തി

പരീക്ഷണപ്പറക്കൽ നാളെ തയ്യാറെടുപ്പ് അന്തിമ ഘട്ടത്തിൽ

നേരിടും

തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് എസ്

ഇതിനു മുന്നോടിയായി മൊഴികളും തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു

പി കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നത്

ജിമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് നേരത്തെ ഐ

പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരി ഉൾപ്പെടെ മൂന്നുപേർ നിരാഹാരസമരം തുടരുകയാണ് അതിനിടെ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഐ

മാർച്ചിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷധക്കാരെ പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു ഇതേത്തുടർന്ന് സമരക്കാർ ഇപ്പോൾ കുത്തിയിരുപ്പ് സമരം നടത്തുകയാണ്

പ്രളയ ദുരിതാശ്ചാസത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ധനസഹായ വിതരണത്തന്റെ സ്ഥിതിയും യോഗം അവലോകനം ചെയ്തു

മേഴ്സിക്കുട്ടിയമ്മ പഞ്ചായത്ത് വിഹിതം കൊണ്ട് മാത്രം തികയാത്ത ഇടങ്ങളിൽ ബാങ്ക് വായ്പ ലഭ്യമാക്കി ലൈഫ് വീടുകളുടെ നിർമാണം ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്പത്ത് പറഞ്ഞു നെടുമ്പന പഞ്ചായത്തിൽ ലൈഫ് രണ്ടാംഘട്ട ധനസഹായ വിതരണവും ഇവിടെ നിർമിച്ച കോൺഫറൻസ് ഹാളിന്റെ സമർപ്പണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി പദ്ധതിവിഹിതത്തിൽ ബാങ്ക് വായ്പ ഉൾപ്പെടുത്തി ഉപഭോക്താവിന് സാമ്പത്തിക ഭാരമില്ലാതെ വീടൊരുക്കാനാണ് ശ്രമിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഭൂരഹിതർക്കായി സ്ഥലം വാങ്ങി വീട് നിർമിച്ചു നൽകും

മന്ത്രിമാരായ പി തിലോത്തമൻ ജി സുധാകരൻ എന്നിവർ നേരിട്ടെത്തിയാണ് ഫണ്ട് ഏറ്റുവാങ്ങുന്നത് ഇന്നലെ ചേർത്തലയിലും അരൂരിലും ധനസമാഹരണം നടത്തിയിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ

ഭൂമി കൈയേറ്റം സംബന്ധിച്ച് കളക്ടർമാർ തഹസീൽദാർമാർ എന്നിവരിൽ നിന്ന് സെൽ റിപ്പോർട്ട് തേടും

ജലീൽ കേരളത്തിലെ സർവ്വക്ലാൾ്ലകളുടെ പ്രവർത്തനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രൂണ്ടു് മാസത്തിലൊരിക്കൽ വിലയിരുത്തും വിവിധ സർവ്വകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗത്തിൽ മന്ത്രി കെ

ജലീലാണ് ഇക്കാര്യം അറിയിച്ചത്

കാർഗോ പോർട്ടിന്റെ നിർമാണ കമ്പനിയായ മലബാർ പോർട്സ് ആണ് പദ്ധതിയുടെ നിർമാണത്തിന്റെ ഭാഗമായി കടലിലെ മണൽ നീക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് അദ്ദേഹം ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ച്ചൂർച്ച ചെയ്യും മേഖലാ സുരക്ഷ വാണിജ്യം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ള വിവിധ വിക്സ്ന് പദ്ധതികൾ തുടങ്ങിയവ ചർച്ചാവിഷയങ്ങളാവും അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ തുടങ്ങിവച്ച അടിസ്ഥാന സൌകര്യ വിക്സന് പരിപാടികൾ ഇരു നേതാക്കളും വിലയിരുത്തും സ്ഥിത്ത് ഗവേഷണ സ്ഥാപനമായ ഇന്ത്യാ ഫൌണ്ടേഷൻ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റിന് പൌരസ്വീകരണം നൽകും

കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി നിയമനത്തിന് അംഗീകാരം നൽകി

കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സെക്രട്ടറിയായി മുതിർന്ന ഐ

എസ് ഓഫീസർ അനിന്തോ മജുംഭാരിനെയും നിയമിച്ചു

വിജയരാഘവൻ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തെളിവുകൾ ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേസ് എഴുതിത്തള്ളണമെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെ കേസ് ഏഴുതി തള്ളരുതെന്നും അന്വേഷണം തുടരണമെന്നും ആവശ്രൂപ്പെട്ടാണ് എൽഡിഎഫിനു വേണ്ടി കൺവീനർ എന്ന നില്യ്ക്ൽ ഹർജി നൽകിയത്

സി ഫ്ളക്സ് മനുഷ്യനും പ്രകൃതിക്കും ഏറെ നാശം വിതയ്ക്കുന്ന പി വി സി ഫ്ളക്സ് ബോർഡുകളും ബാനറുകൾക്കുമെതിരായ നടപടികൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി ജില്ലയിൽ നിന്ന് ഏറെക്കുറെ തുടച്ചുമാറ്റപ്പെട്ട ഫ്ളക്സ് ബോർഡുകളും ബാനറു കളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുതുടങ്ങിയ സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം ഫ്ളക്സ് പ്ലാസ്റ്റിക് കാരി ബാഗ് നിരോധനം വിജയകര മായി നടപ്പിലാക്കിയതിന് ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ ജില്ലയാണ് കണ്ണൂരെന്ന് യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ഡിപിസി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് പറഞ്ഞു

ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചു മണി മുതലാണ് മത്സരം ഒരു വർഷത്തിനുശേഷമാണ് ക്രിക്കറ്റ് കളത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടുന്നത്

ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന്റോട് പരാജയപ്പെട്ട ഹോങ്കോങ്ങ് ഇതോടെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

ഐ ഹർത്താൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ

അഷ്ടമുടിക്കായലും അറബിക്കടലും കല്ലട്ടയാറും ഒത്തുചേരുന്ന ത്രിവേണി സംഗമത്തിൽ സ്നാന്നും ചെയ്തുള്ള ഉരുൾനേർച്ചയ്ക്ക് ആയിരക്കണക്കിനു വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഉരുൾ നേർച്ച മഹോത്സപ്പ് മറ്റുന്നാൾ സമാപിക്കും

ആംബുലൻസ് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് മൂന്നാറിൽനിന്ന് സർവീസ് ആരംഭിച്ചു മൂന്നാറിലെത്തുന്ന വിനോദ സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും അടിയന്തര സാഹചര്യങ്ങളിൽ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

അപേക്ഷകർ ബി